ശേഷി ഇന്ത്യൻ സമ്പദ്ദ്വ്യ്പ്പസ്ഥയ്ക്ക് ഉണ്ടെന്ന് നിതി ആയോഗ് ഗ്ലൈസ് ചെയർമാൻ രാജീവ് കുമാർ

പൂജ്യത്തിലേക്കെത്തിക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് ഇന്ത്യൻ റെയിൽവേ മുന്നേറുകയാണെന്ന് കേന്ദ്രമന്ത്രി പിയൂഷ് ഗോയൽ

രണ്ടാം ഘട്ട ക്സിനിക്കൽ പരീക്ഷണങ്ങൾ ചെന്നൈയിലും പൂനെയിലും ആരംഭിച്ചു

കേരളത്തിൽ പ്രതിദിന രോഗ ബാധിതരുടെ എണ്ണം ഇന്നലെയും രണ്ടായിരത്തിനു മുകളിൽ

എസ് ടി കൌൺസിൽ യോഗം ആരംഭിച്ചു

നഷ്ടം പരിഹരിക്കുന്നതിനായി പ്പിപ്പണിയിൽ നിന്ന് വായ്പ എടുക്കുന്നതിന്റെ നിയമ്സാധുത സംബന്ധിച്ച് കേന്ദ്രം അറ്റോർണി ജനറലിന്റെ അഭിപ്രായം തേടിയിരുന്നു

ഇ നീറ്റ് പരീക്ഷകൾ നടത്തുന്നതിന് ആവശ്യമായ എല്ലാ മുൻകരുതൽ നടപടികളും സ്വീകരിച്ചിട്ടുണ്ടെന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി അറിയിച്ചു

ഇ നീറ്റ് പരീക്ഷകൾ അടുത്തമാസം നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത് പരീക്ഷ എഴുതുന്ന വിദ്യാർഥികളുടെയും പരീക്ഷാ നടത്തിപ്പ് ഉദ്യോഗസ്ഥരുടെയും സുരക്ഷയാണ് പരമ പ്രാധാന്യം നൽകുന്നതെന്ന് എൻ ടി എ ഡയറക്ടർ ജനറൽ ഡോ വിനീത് ജോഷി മാധ്യമങ്ങളോട് പറഞ്ഞു സാമൂഹിക അകലം പാലിക്കുന്നതിനുള്ള സർക്കാർ മാനദണ്ഡങ്ങൾ എല്ലാം പാലിച്ചായിരിക്കും പരീക്ഷയെന്ന് അദ്ദേഹം ഉറപ്പു നൽകി

കയറ്റുമതി രംഗത്തെ പ്രിയ്തിസ്ന്ധികളും അവസരങ്ങളും മനസ്സിലാക്കാനൂക്ട് സ്ർക്കാർ നയങ്ങളുടെ കാര്യക്ഷമത വർധിപ്പിക്കാനും നിയ്ത്രണ സംവിധാനങ്ങൾ സൌകര്യപ്രദമാക്കുന്നത് പ്രോത്സാഹിപ്പിക്കാനും ആണ് ഇ

ഐ

ബിസ്റ്റുസ്റ്റ് നിയം ബിസിനസ് സാഹചര്യം കയറ്റുമതി സാഹചര്യം ക്യറ്റുമതിയിലെ മികവ് എന്നീ നാല് ഘടകങ്ങളാണ് ഇപിഐ യിൽ പ്രധാനമായും ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇതുകൂടാതെ കയറ്റുമതി പ്രോത്സാഹനം അടിസ്ഥാന സൌകര്യങ്ങൾ ചരക്ക് നീക്കത്തിന് ഉള്ള സൌകര്യം തുടങ്ങി പതിനൊന്ന് ഉപഘടകങ്ങളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്

ഗുജറാത്ത് മഹാരാഷ്ട്ര തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങൾ ആണ് ആദ്യ മൂന്ന് റാങ്കുകളിൽ എത്തിയത് ഇന്ത്യൻ സമ്പത്ത് വൃവസ്ഥ ശക്തിപ്പെടുത്തുന്നതിന് എല്ലാ സംസ്ഥാനങ്ങളും കേന്ദ്രഭരണപ്രദേശങ്ങളും കയറ്റുമതി വർദ്ധിപ്പിക്കേണ്ടതുണ്ട് നീതി ആയോഗ് വ്യക്തമാക്കി

ലോകത്താദ്യമായി കാർബൺ ബഹിർഗമനം പൂജ്യമാക്കുന്ന റെയിൽവേ സംവിധാനമായി ഇന്ത്യൻ റെയിൽവേ മാറുമെന്നും പിയൂഷ് ഗോയൽ വ്യക്തമാക്കി

ടോൾ പ്താസക്ളിൽ ഡിജിറ്റൽ പണമിടപാടുകൾ പ്രോത്സാഹ്റ്റീപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് നടപടി

പുരാവസ്തു സ്മാരകങ്ങളെ സംരക്ഷിക്കാനും അവയുടെ രജിസ്ട്രേഷൻ നടപടികൾ കൂടുതൽ സുഗമമാക്കാനുമാണ് നടപടിയെന്ന് സാംസ്കാരിക വിനോദസഞ്ചാര വകുപ്പ് മന്ത്രി പ്രഹ്താദ് സിംഗ് പട്ടേൽ വീഡിയോ സന്ദേശത്തിൽ വ്യക്തമാക്കി

പലിശ ഒഴിവാക്കുന്നത് സംബന്ധിച്ച് തീരുമാനമെടുക്കാൻ ദുരന്തനിവാരണ നിയമപ്രകാരം സർക്കാരിന് അധികാരമുണ്ട്

ചൊവ്വാഴ്ച പുലർച്ചെ ഡൽവാസ് നസ്രി പീഡ എന്നിവിടങ്ങളിലുണ്ടായ മണ്ണിടിച്ചിലാണ് ഗതാഗതം നിലയ്ക്കാൻ കാരണമായത് കശ്മീർ താഴ്വരയെ രാജൃത്തിന്റെ മറ്റു ഭാഗങ്ങളുമായി ബന്ധിപ്പിക്കുന്ന റോഡും അടച്ചിട്ടിരിക്കുകയാണെന്ന് ആകാശവാണി ജമ്മു ലേഖകൻ റിപ്പോർട്ട് ചെയ്യുന്നു തുടർച്ചയായി പെയ്യുന്ന മഴ കാരണം പന്തിയൽ മോം പാസി മരോഗ് എന്നിവിടങ്ങളിലും മണ്ണിടിച്ചിലുണ്ടായി

ചെന്നൈയിൽ രണ്ട് പ്രമുഖ് ആരോഗ്യ സ്ഥാപനങ്ങളിലാണ് ഓക ്സ്ഫോർഡ് വാക്സിൻ ട്ട് കാൻഡിഡേറ്റ് കോവിഷീൽഡിന്റെ രണ്ടും മൂന്നും ഘട്ട പരീക്ഷണങ്ങൾ ആരംഭിച്ചത്

ഓക്സ്ഫോർഡ് സർവകലാശാലയും അസ്ട്രാസെനെക്കയും സംയുക്തമായി വികസിപ്പിച്ച കോവിഷീൽഡ് വാക്സിന്റെ മനുഷ്യരിലെ പരീക്ഷണം നടത്തുന്ന ഇന്ത്യയിലെ പതിനേഴ് സ്ഥലങ്ങളിൽ ഒന്ന് ചെന്നൈയാണ്

സുരക്ഷ രോഗപ്രതിരോധ ശേഷി റിയാക്റ്റോ ജെനിസിറ്റി എന്നിവ വിലയിരുത്തുന്നതിനാണിത് അതിനിടെ മഹാരാഷ്ട്രയിലെ പൂനെയിൽ വാക്സിനുകളുടെ രണ്ടാം ഘട്ട ക്ലിനിക്കൽ പരീക്ഷണങ്ങൾ ഭാരതി വിദ്യാപീഠിലെ മെഡിക്കൽ കോളേജിൽ ആരംഭിച്ചു രണ്ട് പുരുഷ സന്നദ്ധപ്രവർത്തകർക്ക് വാക ്സിൻ നൽകിയതായി ആശുപത്രി അധികൃതർ അറിയിച്ചു

ന്യൂസ് ഡെസ്ക് ആകാശവാണി

ന്യൂസ് ഡെസ്ക് ആകാശവാണി

വിഅബൂബക്കർ പി മുഹമ്മദ് എ ഷമീം അബ്ദുൾ ഹമീം പി

കോഴിക്കോട് മലപ്പുറം ജില്ലകളിലുള്ള ഇവരുടെ വീടുകളിലും ജുവലറികളിലും നടത്തിയ റെയ്ഡിന് പിന്നാലെയാണ് നാലുപേരും അറസ്റ്റിലായത്